ലീഗിന് പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമെന്ന് റിപ്പോർട്ടുകൾ

പ്രതിപക്ഷ നിസ്സഹകരണത്തിനിടെ ബിൽ വ്യാഴാഴ്ച ലോക്സഭ പാസാക്കിയിരുന്നു തൽക്ഷണമുള്ള മുത്തലാഖ് ചൊല്പൽ അസാധുവും നിയമവിരുദ്ധവുമാക്കിക്കൊണ്ടുള്ളതാണ് ബിൽ മുസ്തീം വനിതകളെ മുത്തലാഖ് ചൊല്ലുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു

എയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും രാജ്യസഭയിൽ ബിൽ പാസാക്കാനാകുമെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ന് രാജ്യസഭയിൽ ഹാജരാകാൻ ബി ജെ

എല്ലാ എം

മാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് ബിൽ പാസാക്കാനനുവദിക്കില്ലെന്ന് വൃക്തമാക്കി കോൺഗ്രസും എം

മാർക്ക് വിപ്പ് നൽകി

പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് പടക്കങ്ങൾ പൊട്ടിക്കുന്നതും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതും അന്തരീക്ഷമലിനീകരണം അതീവ ഗുരുതരാവസ്ഥയിലാക്കുമെന്ന് മാലിന്യനിയന്ത്രണബോർഡും മുന്നറിയിപ്പ് നൽകുന്നു

പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി പടക്കങ്ങൾ പൊട്ടിക്കുന്നത് ഒഴിവാക്കിയാൽ മലിനീകരണത്തിന്റെ തീവ്രത കുറയ്ക്കാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമായി ഡൽഹിയിലെ അന്തരീക്ഷം ആരോഗ്യത്തിന് തീവ്ര വെല്ലുവിളി ഉയർത്തുന്ന അവസ്ഥയിലാണ് തുടരുന്നത് ഗാസിയാബാദ് ഗുരുഗ്രാം ഫരീദാബാദ് നോയിഡ എന്നിവിടങ്ങളിലും ഗുരുതരാവസ്ഥയിലുള്ള വായുമലിനീകരണ തോതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവ്വഹിക്കും

നോബേൽ നേതാക്കളും വിഖ്യാത ശാസ്ത്രജ്ഞർ നിയ്തന്ത്രജ്ഞർ യുവ ഗവേഷകർ വിദ്യാർത്ഥികൾ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുപ്പതിനായിരം പ്രതിനിധികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ശാസ്ത്രവും സാങ്കേതികതയും എന്ന വിഷയത്തിൽ ഊന്നിയുള്ള പ്പിവിൽ സമ്മേളനങ്ങളാണ് അഞ്ചു ദിവസം നീളുന്ന സയൻസ് ക്യോൺഗ്രസ്റ്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്

ആർ ഡി ഒ ഐ എസ് ആർ

ഐ സി

ഇ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ കൂടാതെ യു

കെ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരും സയൻസ് കോൺഗ്രസ്സിൽ പങ്കെടുക്കും

എണ്ണവില വർദ്ധന അമേരിക്ക ചൈന വ്യാപാരയുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നീ പ്രതികൂല ഘടകങ്ങൾ രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് പ്രത്യക്ഷത്തിൽ ബാധിക്കില്ലെന്ന് സിഐഐ കണക്ക് കൂട്ടുന്നു സേവനമേഖലയിലും അടിസ്ഥാന വികസന മേഖലയിലും ഉണ്ടായിട്ടുള്ള വളർച്ചാ അനുപാതം സാമ്പത്തികരംഗത്ത് കൂടുതൽ ഉണർവ്വുണ്ടാക്കുമെന്നും സിഐ പറയുന്നു

എസ് ടി നടപ്പാക്കിയത് വിപണിയിലെ വർദ്ധിച്ച ആവശ്യകത അടിസ്ഥാന വികസന മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്

ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു

ഐ

ജഷറാബാദിലാണ് ഇന്നല്ല പ്രിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്ത് ത്രീവ്രവാദികളായ മുഫ്തി മുഹമ്മദ് സുഹൈൽ ഉൾപ്പെടെ പത്ത് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഭൂീകരാക്രമണത്തിനും പ്രധാന രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനും പദ്ധതിയിട്ടുന്ന്തിനിടെയായിരുന്നു അറസ്റ്റ്

ഐ എ പരിശോധന നടത്തിയിരുന്നു

ഇന്ന് രാത്രി എട്ടു മണി മുതൽ പുതുവത്സര ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നതുവരെ കൊണോട്ട് പ്തേയ്സിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുള്ളതായി പോലീസ് അറിയിച്ചു ന്യൂഡൽഹി റെയിൽവേസ്റ്റേഷനിലേക്ക് പോകുന്നവർക്ക് മറ്റൊരു വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാൽ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ നിയന്ത്രണങ്ങളില്ല

രണ്ടു സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ മരണത്തെത്തുടർന്ന് ഒരു സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റി വച്ചു

പ്രതിപക്ഷമായ എൻ

നിഷ്പക്ഷമായ ഗവൺമെന്റിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പു നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു

ഇതിൻപ്രകാരം വോട്ടർപട്ടികയും തയ്യാറായിരുന്നു

പ്രാദേശിക ജില്ലാഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ മേധാവി പറഞ്ഞു

ബച്ചൌ ഗാന്ധി ധാം പാതയിൽ കാറും രണ്ടു ട്രക്കുകളും കൂട്ടിയിടിച്ചാണ് അപകടം നാലുപേർക്ക് പ്രരിക്കുണ്ട് ടയർ പൊട്ടിയതിനാൽ കാർ നിയന്ത്രണം വിട്ട് ട്രിക്കിലിടിക്കുകയായിരുന്നു

ദുരന്തത്തിൽ മുഖ്യമന്ത്രി വിജയ് രൂപാനി അനുശോചിച്ചു

ബോട്ടുകളിലുണ്ടായിരുന്ന പതിനാല് പേരെയും അറസ്റ്റ് ചെയ്തു മണൽ നിറച്ച ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ രേഖകളോ ലൈസൻസോ ഉണ്ടായിരുന്നില്ല അറസ്റ്റിലായവർ പശ്ചിമബംഗാളിൽ നിന്നുള്ളവരാണെന്ന് പറയപ്പെടുന്നു ഇവരെ തീരദേശസേന പോലീസിന് കൈമാറി

ലോകചാമ്പ്യൻഷിപ്പിൽ വെള്ളി വെങ്കല മെഡൽ ജേതാക്കളായ സോണിയ ചഹാൻ ലവ്ലിന ബോർ ഗൊയ്ൻ പിങ്കി ജൻഗ്ര നിഖാത് റെഹൻ എന്നിവർ മത്സരത്തിനുണ്ട്

പുരുഷസിംഗിൾസിൽ ബംഗളൂരുവിന്റെ അജയ് ജയറാമിനെ ശ്രീകാന്ത് പരാജയപ്പെടുത്തി

എന്നാൽ വനിതാ സിംഗിൾസിൽ ബംഗളൂരു താരത്തെ പരാജയപ്പെടുത്തി പൂനെ ക്യാപ്റ്റൻ കരോലിന മാരിൻ വിജയം നേടി

ഇരു ടീമുകളും തുല്യ പോയിന്റുകളിൽ തുടർന്ന സമയത്ത് ബംഗലൂരുവിന്റെ ബി സായ് പ്രണീത് നേടിയ വിജയമാണ് ബംഗലൂരു റപ്റ്റേഴ്സിന്റെ പോയിന്റു നില ഉയർത്തിയത് ഇന്ന് രാത്രി ഏഴിന് അവധ് വാരിയേഴ്സ് മുംബൈ റോക്കറ്റ്സ് മത്സരം നടക്കും

ഇന്നലെ ഡൽഹിയിൽ നടന്ന സെലക്ഷൻ ട്രയൽസില്ടാണ് ഇരുവിഭാഗങ്ങളിലും സൌരഭ് മുന്നിലെത്തിയത്